പുനർവിളംബരം ചെയ്ത് മുത്തലാഖ് ഓർഡിനൻസിന് രാഷ്ട്രപതി അംഗീകാരം നൽകി

ഒറയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനം

ബൈപ്പാസും ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്യും

തമിഴ്നാട്ടിലെ മയിലാടുതുറ്റെറ് പേര്മ്പല്ലൂർ ശിവഗംഗ വിരുദുനഗർ എന്നിവിടങ്ങളിലെ ബ്ലിജെപി പ്രവർത്തകരുമായി വീഡിയോകോൺഫറൻസില്പൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജെ പി ഏറ്റെടുത്തിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പാർട്ടിക്ക് ശുഭാപ്തി വിശ്വാസമു ങ്കിലും പാർട്ടി പ്രവർത്തകർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം ബിജെപിയിൽ മാത്രമേ പാവപ്പെട്ട പ്രവർത്തർക്ക് ഉയരങ്ങൾ പ്രാപ്യമാക്കാൻ കഴിയൂ എന്നും ശ്രീ മോദി പറഞ്ഞു തമിഴ്നാട്ടിലെ പേരുകേട്ട വസ്ത്ര നിർമാണമേഖല യുടെ ഉന്നമനത്തിനായി കേന്ദ്ര ഗവൺമെന്റ് അനവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടു ് വൃവസായങ്ങൾ തുടങ്ങാൻ ഇളവ് അനുവദിച്ചത് വലിയ വൃവസായങ്ങളെ മാത്രം ലക്ഷ്യമിട്ടല്ല ചെറുതും ഇടത്തരവുമായ മേഖലയുടെ വളർച്ചകൂടി കണക്കിലെടുത്താണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിലെ ബി

ജനങ്ങളുടെ ശാക്തീകരണത്തിനായി ബിജെപി ശ്രമിക്കുമ്പോൾ മറ്റു പാർട്ടികളും പുതിയ സഖ്യങ്ങളും അവരുടെ അധീശത്വം ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആരൊക്കെ സഖ്യമു ാക്കിയാലും ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തന്നെ കേന്ദ്രത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുമെന്നും ന്യൂഡൽഹിയിൽ ക്യേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു

ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നു ായ സിഖ് കൂട്ടക്കൊലയ്ക്ക് കാരണം അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആണെന്നും ശ്രീ മോദി ന്യൂഡൽഹിയിൽ പറഞ്ഞു

പാവപ്പെട്ടവർ ദളിതർ ന്യൂന്നപ്ക്ഷവിഭാഗം പിന്നാക്കവിഭാഗം എന്നിവർക്ക് വേ ി ക്ടോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന ആരോപണം ശ്രീ ആസാദ് നിഷേധിച്ചു

ഇത് സംബന്ധിച്ച് നീതിന്യായമന്ത്രാലയം വിജ്ഞാപനമിറക്കി

കർഷകരുടെ കഴിവുകൾ ക ത്തി അവ വികസിപ്പിക്കൂട്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോഡിയാണ് ഏഴംഗ മന്ത്രിതല സംഘത്തിന്റെ തലവൻ ധനമന്ത്രി അരുൺജയ്റ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ജി

ഈ കമ്മിറ്റി ചരക്കു സേവന നികുതി സംബന്ധിച്ച കണക്കെടുപ്പ് നടത്തുകയും നികുതി പിരിവ് വർദ്ധിപ്പിക്കുന്നതിന് വേ നടപടികൾ നിർദ്ദേശി ക്കുകയും ചെയ്യും ബിഹാർ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാ ഖണ്ഡ് ജമ്മൂകാശ്മീർ ഒഡീഷ ഗുജറാത്ത് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങൾ ജി എസ്

സമ്മേളനത്തിൽ ആഫ്ഗാനിസ്ഥാനും പങ്കെടുത്തു

പത്ത് മീറ്റർ എയർ റൈഫിൾ മത്സരത്തിൽ പശ്ചിമബംഗാളിന് വേ ിയാണ് ഷാ മെഡൽ നേടിയത് മെഹുലി ഘോഷിനൊപ്പമാണ് ശ്രീ അഭിനവ് ഈ നേട്ടം കൈവരിച്ചത്

ദ്വീപിലെ സൈനിക കമാൻഡുകളുടെ വികസനവും പരിഷ്കരണവും മന്ത്രി വിലയിരുത്തും

തുടർന്ന് സൈനികരുമായി മന്ത്രി ആശയവിനിമയം നടത്തും ദ്വീപിൽ ദ സൈനികരുടെ കുടുംബങ്ങൾക്കുള്ള പുതിയ പാർപ്പിട പദ്ധതിയും പ്രതിരോധമന്ത്രി ഉദ്ഘാട്ടനം ചെയ്യും

കനത്ത മഞ്ഞു വീഴ്ച കാരണം ഹിമാചൽപ്രദേശ് ജമ്മുകാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജനജീവിതം മരവിച്ച നിലയിലാണ്

കശ്മീരിലെ താപനില വരുംദിവസങ്ങളിൽ വർധിക്കുമെന്നാണ് പ്രവചന്നു ന്യൂസ് ഡെസ്ക് ആകാശപാണി

ഗുരുജിയുടെ ജന്മസ്ഥലമായ പട്ന സാഹിബിൽ പ്രകാശോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷങ്ങളിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു

പ്രധാനമന്ത്രിയും സിഖ് സമൂഹത്തിന് ആശംസകൾ നേർന്നു

രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ലോഹ്രി ഉത്സവാശംസകൾ നേർന്നു പൊങ്കൽ മകരസംക്രാന്തി ഉത്തരൂിയൻ ഭോഗാലി ബിഹു പുഷ്പർബോൺ എന്നീ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നവർക്കും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രിധാനമന്ത്രി എന്നിവർ ആശംസകൾ നേർന്നു

രാജേന്ദ്ര റാഥോഡിനെ ഉപനേതാവായും തെരഞ്ഞെടുത്തു

കല്യാൺപ്പൂരിന് സമീപം മഹോർ ഗ്രാമത്തിൽ ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് കാൺപൂരിൽ നിന്ന് അലഹബാദിലേക്ക് പോയ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു ടയർ പഞ്ചറായതിനെ തുടർന്ന് ബസിന്റെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു

ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കൊല്ലത്ത് ഒരുക്കങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്

മകരവിളക്ക് ഉത്സവത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായതായി ദേവസ്വം കമ്മീഷണർ എൻ

മകര സംക്രമ പൂജയ്ക്ക് മുന്നോടിയായി ആരംഭിച്ച ശുദ്ധിക്രിയകൾ ഇന്ന് പൂർത്തിയായി

ല്യോകത്തിലെ ഏറ്റവും വലിയ ഐ ടി ലക്ഷ്യ സ്ഥാനമായി കേരളത്തെ മാ്റ്റുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു